നിർമല സീതാരാമന്റെ അധ്യക്ഷത്യിൽ പുരോഗമിക്കുന്നു സംസ്ഥാനങ്ങൾക്ക് നൽക്ടേണ്ട ്ജി എ സ് ടി നഷ്ടപരിഹാരം സംബന്ധിച്ച് ചർച്ച

സംസ്ഥാനത്ത് കോവിഡ് രോഗികൾക്ക് കൂട്ടിരിപ്പുകാരെ അനുവദിച്ചു

മുകളിലുള്ളവർക്കും ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും പോസ്റ്റൽ ബാലറ്റ് സൌകര്യം വിനിയോഗിക്കാൻ അനുമതി

ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി നിർമ്മലാ സീതാരാമൻ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂർ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാർ എന്നീവർ യോഗത്തിൽ വെർച്ചൽ ആയി പങ്കെടുക്കുന്നുണ്ട്

ജെ

യുടെ സ്ഥാപക നേതാക്കളിലൊരാളായ വിജയ രാജ സിന്ധൃയുടെ സ്മരണാർത്ഥം പുറത്തിറക്കുന്ന നൂറു രൂപ നാണയത്തിന്റെ പ്രകാശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫെറൻസിംഗിലൂടെ നിർവഹിച്ചു പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ച വനിതയായിരുന്നു വിജയ രാജ സിന്ധൃയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഇരുരാജ്യങ്ങളിലെയും കമാൻഡർ തലത്തിലെ സൈനിക ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പ്രിർച്ച് കിഴക്കൻ ലഡാക്കിലെ ചുഷുളിലാണ് നടക്കുന്നത്

ഈ വർഷം ഏപ്രിൽ മെയ് മാസം ് മുതർ തുടങ്ങിയ സംഘർഷാവസ്ഥ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ചർച്ച

കിഴക്കൻ ലഡാക്ക് സെക്ടറിൽ നിന്നും ചൈനീസ് സൈന്യത്തെ പൂർണമായും പിൻവലിക്കണമെന്നും അതിക്രമിച്ചു കയറിയ സ്ഥലത്ത് നിന്നും പിൻവാങ്ങണമെന്നും ചർച്ചയിൽ ഇന്ത്യ ആവശ്യപ്പെടും

പാലങ്ങളുടെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കിയ ബി ആർ ഒ

ലഡാക് അരുണാചൽ പ്രദേശ് സിക്കിം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലെ അതിർത്തി മേഖലയിലാണ് ബി ആർ ഒ പാലങ്ങൾ നിർമ്മിച്ചത്

ജെ

ന്യൂഡൽഹിയിൽ ബി ജെ പി ജനറൽ സെക്രട്ടറി സി ടി രവി പാർട്ടി തമിഴ്നാട് അധ്യക്ഷൻ എൽ

കോൺഗ്രസിലായിരുന്ന ഖുഷ്ബു പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസം കാരണം രാജിവച്ചിരുന്നു

സംസ്ഥാനത്തെ പൊതുവിദൃാലയങ്ങളിൽ ഹൈടെക് ക്ളാസ്മുറി ഹൈടെക് ലാബ് പദ്ധതികൾ പൂർത്തിയായത്യോടെയാണിത്

കോവിഡ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരെ അനുവദിക്കുന്നതിന് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും നിലവില്ലാത്ത സാഹചര്യത്തിലാണിത്

ഐ

പേപ്പറിന് സമാനമായ ഈ വസ്തു കൊണ്ട് പാക്ക് ചെയ്താൽ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികൾ ഭക്ഷ്യവസ്തുവിൽ പ്രവേശിച്ച് ജീർണിക്കുന്നത് തടയാനാകും

ലേല സിദ്ധാന്തത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതിനും ലേലം നടത്തുന്ന രീതിയിൽ നൂതന നിർദേശങ്ങൾ മുന്നോട്ട് വച്ചതിനുമാണ് പരുസ്കാരം ലഭിച്ചത്

കോവിഡ് രോഗികൾ ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ലക്ഷത്തോട് അടുക്കുകയാണ്

ഇന്നത്ത് മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു